നിർമിതബുദ്ധിയുൾപ്പെടെയുള്ള നവീനസാധ്യതകൾ ലോകസംരക്ഷണത്തിനായി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം

എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന്തി്ലെ നടപടിക്രമങ്ങളുടെ സുതാര്യത പ്രധാനമാണെന്നും അത് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമായി തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കോവിഡ് മഹാമാരിക്കിടയിൽ പല മേഖലയിലും അവലംബിച്ച ഡിജിറ്റൽ രീതികൾ എത്രത്തോളം സഹായകരമാണ് എന്ന് രാജ്യം കാട്ടിത്തന്നു

ആഭൃന്തര മന്ത്രാലയത്തിന്റെ മാർഗ്ഗനിർദ്ദേശങ്ങളിൽ നേരത്തെ അറിയിച്ചതുപോലെ സിനിമാ ് ശ്രാലകൾ ശേഷിയുടെ പകുതി ആൾക്കാരെ വീതം പ്രിവേശിപ്പിച്ച് പ്രവർത്തിക്കാൻ അനുവദിക്കുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു മാനദണ്ഡങ്ങൾ പാ്ലിച്ച് ആസ്വാദകർക്കിടയിൽ ശാരീരിക അകലം നൽക്ടി ഇരിപ്പിട ക്രമീകരണം നടത്തണമെന്ന് ശ്രീ

കോവിഡ് പ്രോട്ടോക്കോളുകളെക്കുറിച്ച് അവബോധം നൽകുന്ന ക്സിപ്പിംഗ് സിനിമ ആരംഭിക്കുന്നതിന് മുമ്പും ഇടവേളയിലും പ്രദർശിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഒന്നിലധികം ടിക്കറ്റിംഗ് കൌണ്ടറുകൾ ഉറപ്പുവരുത്തി തിരക്ക് ഒഴിവാക്കാമെന്നും ശ്രീ

ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡിനെ യോജിച്ച് നേരിടേണ്ട ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്യുമെന്ന് ഇന്ത്യൻ വിദേശകാര്യി മന്ത്രാലയം അറിയിച്ചു വിദേശകാരൃ മന്ത്രി എസ് ജയ്ശങ്കർ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഓസ്ട്രേലിയൻ വിദേശകാരൃ മന്ത്രി മാരിസ് പെയ്ൻ ജാപ്പനീസ് വിദേശ്കാർ്യ മന്ത്രി തോഷി മിറ്റ്സു മൊ ട്ടെഗി എന്നിവർ സംബന്ധിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

എന്നാൽ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ചില രാജ്യങ്ങളുമായി ട്രാൻസ്പോർട്ട് ബബിൾ സംവിധാനത്തിന് ധാരണയായിട്ടുണ്ട്

രാജ്യത്തെ ചില സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്ഥിരീകരണ നിരക്ക് ദേശീയ ശരാശരിയെക്കാൾ ഉയർന്നു നിൽക്കുന്നത് വ്യാപകമായ പരിശോധനയുടെ ആവശ്യകതയാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നും മന്ത്രാലയം വ്യക്തമാക്കി

എഴുപതോളം കുടുംബാരോഗ്യകേന്ദ്രങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്

ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഭുവനേശ്വറിൽ ഇന്നലെ കൂടിയ ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കിയിൽ മരണം രണ്ട് ലക്ഷം കവിഞ്ഞു രോഗബാധിതരിൽ ്രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ

എൽ ക്രിക്കറ്റിൽ ഇന്ന് നിലവിലെ ചാമ്പൃൻമാരായ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും

കൽക്കരി വൈദ്യുതി മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്

ഡി

ജെ പി കോർ കമ്മിറ്റി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന് സീറ്റുകൾ സംബന്ധിച്ച് അന്തിമരൂപം നൽകി

ജെ പി ജെ ഡി യു നേതാക്കൾ സംയുക്തമായി സീറ്റ് ധാരണയും സ്ഥാനാർത്ഥികളുടെ പേരും പ്രഖ്യാപിക്കും അതേസമയം ആർ ജെ ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാസഖ്യം വിട്ട മുകേഷ് സഹാനി നയിക്കുന്ന വികാസ് ശീൽ ഇൻസാൻ പാർട്ടി എൻ ഡി എയിൽ ചേരാൻ ഒരുങ്ങുകയാണ്